ഉയരുന്നത് സ്ഥിതി രൂക്ഷമാക്കുമെന്ന് മുഖ്യമന്ത്രി കോവിഡ് പ്രതിരോധത്തിന്റെ യു എൻ വേദിയിൽ മന്ത്രി കെ

റഷ്യ ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിതല ചർച്ചയിലായിരുന്നു വിമർശനവുമായി വിദേശകാര്യമന്ത്രി ഡോ

അന്താരാഷ്ട്ര വിഷയങ്ങൾ സമകാലിക യാഥാർത്ഥൃത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടണമെന്ന് ഡോ

പത്രിരാഷ്ട്ര വിദേശകാരൃമന്ത്രിതല ചർച്ചയിൽ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു ഡോ

ഈ സത്യത്തെ അവഗണിച്ചു കൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സംവിധാനത്തിന് തുടരാനാവില്ലെന്നും ഡോ ജയശങ്കർ പറഞ്ഞു

മൂന്ന് ദിവസത്തെ സന്ദർശന്യത്തിനായി മോസ്കോയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ ഉപപ്രധാനമന്ത്രി യൂറി ബോറിസോവും ്തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത് കരാറുകൾ തുടരുകമാത്രമല്ല തുടർ നടപടികൾ കാലതാമസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് റഷ്യ അറിയിച്ചതായി ശ്രീ

റഷ്യൻ ഉപപ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഇന്തൃ റഷൃ പ്രതിരോധ സഹകരണം അവലോകനം ചെയ്ത ഇരു നേതാക്കളും സഹകരണം വിപുലീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു കോവിഡ് മഹാമാരിയുടെ കാലയളവിൽ ഇത് ആദ്യമായിയാണ് വിദേശരാജ്യം സന്ദർശിക്കുന്നതെന്ന് ശ്രീ

ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദത്തിന്റെ സൂചനയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി

കിഴ്ക്ക്ൻ ്ലഡാക്കിലെ സംഘർഷ മേഖലകളിൽ നിന്ന് സൈന്റിക്കത്ത് പിൻവലിക്കാൻ ഇന്നലെ മോൾഡോയിൽ നടന്ന കമ്മൂൻഡർ തല ചർച്ചയിൽ തീരുമാനിച്ചു

യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സംഘർഷത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ലെ സന്ദർശിക്കുന്നത് ലെയിലെ സൈനിക ആശുപത്രിയിൽ എത്തിയ അദ്ദേഹം ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിനിടെ പരിക്കേറ്റ സൈനികരെ സന്ദർശിച്ചു

വിയന്ന ഉടമ്പടിക്കും ഉഭയകക്ഷി കരാറുകൾക്കും അനുസൃതമായല്ല പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതിനു വിപരീതമായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പിൻതുണയ്ക്കുന്ന നയമാണ് പ്രകടമാക്കുന്നത്

പാകിസ്ഥാൻ ഏജൻസികൾ പെരുമാറിയ രീതികൾ സംബന്ധിച്ച് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഈ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയുണ്ടായി

പരമേശ്വരൻ

രോഗികളുടെ എണ്ണം ഉയരുന്നത് സ്ഥിരി രൂക്ഷമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പ്രൂപിണറായി വിജയൻ പറഞ്ഞു

രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് സഹായമെന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ കുറഞ്ഞ പലിശയിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ വായ്പ പദ്ധതി പ്രഖ്യാപിച്ചത്